ലോക്ഡൌണോ ആരോഗ്യ അടിയന്തരാവസ്ഥയോ തൽക്കാലമില്ല

ത കുവൈറ്റ് അമീറിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു

വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം തടയാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഇന്നലെ ചേർന്ന സർവ്വകക്ഷി യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും വിവാഹം മരണാനന്തര ചടങ്ങ് മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കാൻ കഴിയുന്നവരുടെ എണ്ണം നിജപ്പെടുത്തി പുതിയ ഉത്തരവിറക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യം നേരിടാൻ ലോക്ഡൌണോ ആരോഗ്യ അടിയന്തരാവസ്ഥയോ ആവശ്യമില്ലെന്നാണ് സർവ്വകക്ഷി യോഗം വിലയിരുത്തിയത് വരും ദിവസങ്ങളിൽ കോവിഡ് സാഹചര്യം അതിസങ്കീർണ്ണമാകാൻ സാധ്യതയുണ്ടെന്നും അണികളെ ജാഗ്രതപ്പെടുത്താൻ രാഷ്ട്രീയ നേതൃത്വം തയാറാകണമെന്നും ആൾക്കൂട്ടം ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും യോഗത്തിൽ അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു കമ്പോളങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ജാഗ്രത ഇപ്പോഴില്ലെന്ന് അദ്ദേഹം വിലയിരുത്തി ഗവൺമെന്റ് സംവിധാനങ്ങൾക്കൊപ്പം പ്രാദേശിക രാഷ്ട്രീയ കക്ഷി നേതാക്കളും കോവിഡ് നിയന്ത്രണത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി നിർദേശിച്ചു രുര കേരളത്തിലെ കോവിഡ് രോഗ വ്യാപനം ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർവ്വകക്ഷി യോഗത്തിൽ പറഞ്ഞു സമ്പൂർണ്ണ ലോക്ഡൌൺ സംസ്ഥാനത്ത് പ്രായോഗികമല്ലെന്നും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടൽ കൂടി ശക്തിപ്പെടുത്തി രോഗവ്യാപനം തടയാൻ നടപടിയെടുക്കണമെന്ന് ചെന്നിത്തല നിർദേശിച്ചു

ഇന്നലെ പതിവ് പരിശോധനയിലാണ് അദ്ദേഹം കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്

വെങ്കയ്യ നായിഡു തികച്ചും ആരോഗ്യവാനാണെന്ന് ഉപരോഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു രുമ കണ്ണൂരിൽ ഇന്നലെ കോവിഡ് ബാധിച്ച് രണ്ട് പേർ മരിച്ചതായി റിപ്പോർട്ട് കാടാച്ചിറക്കടുത്ത് ആഡൂരിലെ കെ ബാലകൃഷ്ണൻ രാമന്തളിയിലെ പി സുധാകരൻ എന്നിവരാണ് മരിച്ചത് രുമ കോഴിക്കോട് താലൂക്ക് ഓഫീസിലെ ഏഴ് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ഒക്ടോബർ നാലുവരെ താലൂക്ക് ഓഫീസ് അടച്ചിടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൌ ഓഫീസിലെത്തിയവർ സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്ന് അധിക്വതർ ആവശ്യപ്പെട്ടു ദേര കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ കോവിഡ് സെക്കന്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വധശ്രമ കേസ് പ്രതി രക്ഷപ്പെട്ടു

ഇയാൾക്കായി പൊലീസ് തിരച്ചിൽ ഊർജിതമാക്കി

രുമ മോട്ടോർ വാഹന വകുപ്പിലെ അനാരോഗ്യ പ്രവണതകൾ പരിഹരിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പയ്യന്നൂർ ഫറോക്ക് ചടയമംഗലം പത്തനാപുരം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡ്രൈവിങ്ങ് ലൈസൻസും വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പോളികാർബണേറ്റ് കാർഡുകളാക്കി നൽകാൻ ഉടൻ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

മലപ്പുറം ജില്ലയിലെ പെരുംപിലാവ് നിലമ്പൂർ കൊയിലാണ്ടി എടവണ്ണ റോഡുകളും ഇടുക്കിയിലെ വാഗമൺ ഉള്ളിക്കാനം റോഡ് വാഗമൺ ഏഴാംമൈൽ റോഡ് ഏഴാം നമ്പർ പുളിക്കട്ട റോഡ് എന്നിവ ഇവയിൽ ഉൾപ്പെടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു രുമ കുവൈറ്റ് അമീർ ഷെയ്ക് സബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു അറബ് ലോകത്തെ പ്രമുഖ നേതാവായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും കുവൈറ്റ് ജനതയുടെ ദുഖത്തിൽ പങ്ക് ചേരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

രുമ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

കബീർ സലാല തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു

ജസ്റ്റിസ് യു

ലളിത് അധ്യക്ഷനായ ബഞ്ചാണ് കേസ് ഒരിക്കൽ കൂടി പരിഗണിക്കുന്നത് പിണറായി വിജയനടക്കം ആളുകളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ നൽകിയ അപ്പീലാണ് കോടതി പരിഗണിക്കുന്നത് രുമ അയോധ്യയിലെ തർക്ക മന്ദിരം തകർത്ത കേസിൽ ലക്നൌവിലെ പ്രത്യേക സിബിഐ കോടതി വിധി ഇന്ന് ഉണ്ടായേക്കും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട മുതിർന്ന ബിജെപി നേതാവ് എൽ

രാര മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിങ്ങ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും കേന്ദ്രസഹമന്ത്രി പ്രതാപ് സാരംഗി മന്ത്രിമാരായ ഇ

ഐ ഗുണഭോക്താക്കളുടെ മക്കൾക്ക് നൽകി വന്ന സംവരണം നിഷേധിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന് മന്ത്രി ടി

സംവരണം ഒഴിവാക്കി തിങ്കളാഴ്ച്ച ഇ

ഐ കോർപ്പറേഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സംവരണം പഴയപടി നിലനിർത്തണമെന്ന് ടി

രാമകൃഷ്ണൻ കേന്ദ്രത്തോടും ഇ

കോർപ്പറേഷനോടും ആവശ്യപ്പെട്ടു

ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കും രുമ ലൈഫ് ഭവന സമുച്ചയ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഏതന്വേഷണം നേരിടാനും ഗവൺമെന്റ് തയാറാണെന്ന് മന്ത്രി എ

പദ്ധതിയുമായി മുന്നോട് പോവുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം കുന്നംകുളത്തെ ആയിരം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപന ചടങ്ങിൽ പറഞ്ഞു

ദേഴ കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന സദ്ഭാവന മണ്ഡപത്തിന് മന്ത്രി ഇ

ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിന് കേന്ദ്രം സഹായകമാകുമെന്ന് മന്ത്രി പറഞ്ഞു

ഇന്ന് ദുബായിൽ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രുമ കൊല്ലത്ത് ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവ്വകലാശാലക്ക് വേണ്ടി താൽക്കാലികമായി സജ്ജമാക്കുന്ന കുരീപ്പുഴയിലെ കെട്ടിടവും സ്ഥലവും മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മയും കെ രാജുവും സന്ദർശിച്ച് സൌകര്യങ്ങൾ വിലയിരുത്തി സർവ്വകലാശാല കുരീപ്പുഴയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ അഭിപ്രായപ്പെട്ടു